ഇന്ത്യ സന്ദർശിക്കുന്ന പോർച്ചുഗീസ് പ്രസിഡന്റ് മാഴ്സലോ റിബലൊ ഡിസൂസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും

ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ

കൊറോണ പ്രതിരോക്പ്രവർത്തനങ്ങളിൽ ചൈന മാലിദ്വീപ് ന് ഭൂട്ടാൻ എന്നീ രാജൃ്ങ്ങൾക്ക് പിന്തുണ അറിയിച്ച് ഇന്തൃ

പാചകവാതക സബ്സിഡി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു

ഡെന്നീസ് ഷപ്പൊവലോവ് സഖ്യം പൂരുഷ ഡബിൾസ് സെമി ഫൈനലിൽ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സന്ദർശിക്കുന്ന പോർച്ചുഗീസ് സംഘം രാഷ്ട്രപതി ഭവനിലെ ഔദ്യോഗിക വിരുന്നിലും പങ്കെടുക്കും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പോർച്ചുഗൽ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും നാലു ദിവസത്തെ സന്ദർശനത്തിനായാണ് പോർച്ചുഗൽ പ്രസിഡന്റ് ഇന്നലെ തലസ്ഥാനത്ത് എത്തിയത് അദ്ദേഹത്തെ പോർച്ചുഗീസ് മന്ത്രിസഭാ അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അനുഗമിക്കുന്നുണ്ട്

ഒരു സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയ്ട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിട്ടെയിൽ നടത്തിയ ചില വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നും എന്ന് ശ്രീ

തെരഞ്ഞെടുപ്പിൽ മത്സ്രിക്കുന്നത് വിജയിക്കാൻ വേണ്ടി മാത്രമല്ല മറിച്ച് പാർട്ടിയുടെ ൃആൾയങ്ങൾ പ്രചരിപ്പിക്കാൻ കൂടിയാണെന്നും ശ്രീ

മതത്തിന്റെ പേരിൽ ഒരു വേർതിരിവുണ്ടാക്കാൻ സ്റ്റ്ക്കാർ ഉദേശിക്കുന്നില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി

പശ്ചിമബംഗാളിനു വേണ്ടിയുള്ള റെയിൽവേ പദ്ധതികളും കേന്ദ്രമന്ത്രി സമർപ്പിച്ചു

പുരാതന നഗരങ്ങളായ കൊൽക്കത്തയേയും ഹൌറയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റെയിൽപാത ജലത്തിനടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യ റെയിൽപാതയാണിത് ഹൂഗ്ലി നദിയിലെ തുരങ്കത്തിലൂടെയാണ് റെയിൽപ്പാത കടന്നുപോകുന്നത്

മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശൈലേന്ദ്രകുമാർ ജമ്മുവിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചതാണ് ഇക്കാര്യം ജമ്മു ഡിവിഷനിൽ നാലും കശ്മീർ ഡിവിഷനിൽ എട്ടും ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക

തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പെട്ടികൾ ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജമ്മു കശ്മീരിൽ മാതൃകാപെരുമാറ്റ ചട്ടം നിലവിൽ വന്നു

പ്രത്യേക പ്രത്യാക്രമണ സംഘവും രാഷ്ട്രീയ രൈഷ്ടിൾസും ചേർന്നാണ് സേനാ നീക്കം നടത്തിയതെന്ന് പൂഞ്ചിലെ സ്റ്റ്നിയർ പോലീസ് സൂപ്രണ്ട് രമേശ് അൻഗ്രാൽ പറഞ്ഞു ഒരു എ

ആരോഗ്യമന്ത്രി ഡോ ഹർഷവർദ്ധന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്

നോവൽ കൊറോണ വൈറസ് ബാധ നേരിടാൻ ഇന്ത്യ ചൈനയിലേക്ക് അത്യാവശ്യ മെഡിക്കൽ ഉപകരണങ്ങൾ എത്തിക്കും സാമ്പിൾ പരിശോധിക്കുന്നതിൽ മാൽദ്വീപിനും സാഹചര്യം നേരിടാൻ ഭൂട്ടാനും ഇന്ത്യ പിന്തുണ നൽകിയതായി ആരോഗ്യമന്ത്രി ഡോ

പ്രധാനമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും സ്ഥിതിഗതികൾ സൂക്ഷമമായി വിലയിരുത്തുകയാണ് മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ആരോഗൃമന്ത്രി പറഞ്ഞു കേരളത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊറോണ വൈറസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിയെ വിട്ടയച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യരക്ഷാ സെക്രട്ടറിയും ആഭ്യന്തര് സ്ക്രിട്ടറിയും സമിതി അംഗങ്ങളാകും പ്രതിരോധ ആഭ്യ്ന്ത്രൂ സുരക്ഷാ വിഷയങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് പ്രത്യേക സംവിധാനത്തിന്റെ ആവശ്യകതയുണ്ടോ എന്ന് സിമിതി പരിശോധിക്കും

ഈ യത്നത്തിൽ പങ്കെടുത്തവരെ പ്രശംസിച്ചു കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ കത്ത് വ്യോമയാന സഹമന്ത്രി സംഘാംഗങ്ങൾക്ക് നല്കി

യുടെ വിലയിൽ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ സംരക്ഷണം ലഭിക്കും

പാചക വാതക വില വർദ്ധനയെത്തുടർന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധത്തിനിടെയാണ് മന്ത്രാലയം വിശദീകരണവുമായി രംഗത്തെത്തിയത്

ഐ യുടെ മുൻ മേധാവിയുമായ ആർ

പച്ചൌരി അന്തരിച്ചു

ഇൻഫോസിസ് സ്ഥാപക ചെയർമാൻ ആർ നാരായണമൂർത്തിയുടെ മരുമകനാണ് റിഷി ഇദ്ദേഹത്തെ കൂടാതെ മറ്റൊരു ഇന്ത്യൻ വംശജനായ അലോക് ശർമ്മയെ ബ്രിട്ടീഷ് വ്യാപാര സെക്രട്ടറിയായും നിയമിച്ചു

ഇറാനുമായുള്ള യുദ്ധത്തിന് യു എസ് കോൺഗ്രസിന്റെ അംഗീകാരം വേണമെന്നാണ് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത് എന്നാൽ രാജ്യ സുരക്ഷയ്ക്കെതിരെ പ്രതിരോധിക്കാൻ പ്രമേയത്തിൽ വ്യവസ്ഥയുണ്ട്

ഇന്നലെ നടന്ന കാർട്ടറിൽ നാലാം സീഡുക്കാർായ ജീൻ ജൂലിയൻ റോജർ ഹോരിയ ടെക്കാവു സഖ്യത്തെയാണ് ഇവർ പരാജയപ്പെടുത്തിയത് ഇന്നത്തെ കാർട്ടർ വിജയികളുമായി ഇന്തോ കനേഡിയൻ സഖ്യം നാളത്തെ സെമിയിൽ ഏറ്റുമുട്ടും